സിംഗ് ടെഹ്റാനിലെത്തി ഇറാൻ പ്രതിരോധമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും

കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മഹാരാഷ്ട്ര ആന്ധ്രപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം

പരിശോധനകൾ വർദ്ധിപ്പിക്കാനുളള നടപടികൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇറാൻ പ്രതിരോധമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം പ്രതിരോധ രംഗത്തെ സഹകരണത്തെ ക്കുറിച്ച് ചർച്ച ചെയ്യും മോസ്ക്കോയിൽ ഷാങ്ഹായ് സഹകരണ അംഗ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് ശ്രീ

പേർഷ്യൻ ഗൾഫിലെ സ്ഥിതിയെ ക്കുറിച്ച് ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടെന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരി ക്കാൻ മേഖലയിലെ രാജ്യങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു

എന്നാൽ രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർദ്ധനീപ്പ് തു്ടരുന്നത് ആശങ്ക ഉയർത്തുകയാണ്

എന്നിവിടങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്

രോഗബാധയുടെ കണ്ണി മുറിക്കാനും മരണനിരക്ക് ഒരു ശതമാനത്തിൽ താഴെ നിർത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് നിർദ്ദേശം പരിശോധന കളുടെ എണ്ണം വർധിപ്പിക്കാനും ഫലപ്രദമായ രോഗ പരിചരണത്തിനും വിവിധ് തലത്തിലുള്ള നിരീക്ഷണം ശക്തമാക്കാനുമാണ് നിർദേശം

കേരളത്തിൽ പരിശോധനകൾ വർദ്ധിപ്പിക്കാനുളള നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു

ബാധിക്കാമെന്നും മുഖ്യമന്ത്രി ഓർമപ്പെടുത്തി

ഉത്തർപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ

ബിസിനസിന് സഹായകരമായ വിവര ലഭ്യത ഏകജാലക സംവിധാനം തൊഴിൽ പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിലെ നിയന്ത്രണം എന്നിവയ്ക്ക് പുറമേ മറ്റ് ഘടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് റാങ്കിംഗ് സഹകരണത്തിലും മത്സരക്ഷമതയിലും അധിഷ്ഠിതമായ ഫെഡറൽ ഘടനയെ കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ വ്യക്തമാക്കി സംസ്ഥാനങ്ങൾക്കായി റാങ്കിംഗ് സംവിധാനമുള്ള ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള റാങ്കിംഗ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിസിനസ് മേഖലയിലെ പരിഷ്കരണങ്ങളെ ഇന്ത്യ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ഇതിന്റെ ഫലമായി കോവിഡ് പ്രതിസന്ധിയുടെയും അടച്ചിടലിന്റേയും പശ്ചാത്തലത്തിൽ പോലും രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപം വർദ്ധിച്ചതായി ധനമന്ത്രി നിർമല സീതാരാമൻ അഭിപ്രായപ്പെട്ടു ബിസിനസ് നിയന്ത്രണങ്ങളിലെ അധികഭാരം ഒഴിവാക്കാനും അപേക്ഷാ നടപടികൾ ലളിതമാക്കാനും ഡിജിറ്റൽ നുടപ്പട്ടികൾ അംഗീകരിക്കാനും കേന്ദ്രമന്ത്രി ഹർദീപ്സിംഗ് പുരി സ്റ്റസ്മാനങ്ങളോട് ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണ്

ദീപേഷ് സാവന്തിനെയാണ് നർകോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയതത് ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആറ് പേർ അറസ്റ്റിലായി ദീപേഷ് സാവന്തിനെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു

ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് നടപടി

കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷകൾ സുരക്ഷിതമായി നടത്താൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിക്കും

ത്രിപുര മുഖ്യമന്ത്രി ബിപ്ളവ് കുമാർ ദേബ് ഇന്ത്യയിലെ ബംഗ്ലാദേശ് സ്ഥാനപതി റിവ ഗാംഗുലി ദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു

ശീതീകരണ ഉപകരണത്തിൽ ഉണ്ടായ തീപിടിത്തമാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ട്

രണ്ട് ദിവസം മുൻപാണ് ബസ്തർ ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങളിൽ നിന്നായി ഗ്രാമീണരെ തട്ടിക്കൊണ്ട് പോയത് നാലുപേരെ മാവോയിസ്റ്റുകൾ വധിച്ചിരുന്നു

മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ മെഡിക്കൽ ബിരുദവിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത് ജസ്റ്റിസുമാരായ എം

സയിദ് എസ്

യുഎൻ ചാർട്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് ഇത്തരം പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കേണ്ടതെന്ന് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ നിർദ്ദേശിച്ചു ഭീകരതയെ നേരിടാൻ ബ്രിക്സ് രാഷ്ട്രങ്ങൾക്കിടയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ ആവശ്യപ്പെട്ടു

എസ് ഓപ്പണിൽ ഇന്ത്യയുടെ റോഹൻ ബൊപ്പണ്ണ കാനഡയുടെ ഡെന്നീസ് ഷപോവലോവ് സഖ്യം പുരുഷ ഡബിൾസ് കാർട്ടർ ഫൈനലിൽ കടന്നു വനിതകളുടെ സിംഗിൾസിൽ അമേരിക്കൻ താരം സെറീന വില്യംസ് നാലാം ഘട്ടത്തിലേക്ക് കടന്നു അതിനിടെ വനിതകളുടെ ഡബിൾസിൽ ക്രിസ്റ്റീന മ്ലഡെനോവിച്ച് ടിമിയ ബാബോസ് സഖ്യം ടൂർണമെന്റിൽ നിന്ന് പിൻമാറി മ്ലഡെനൊവിച്ച് കോവിഡ് നിരീക്ഷണത്തിൽ ആയതിനെ തുടർന്നാണ് പിൻമാറ്റം